നരേന്ദ്രമോദി കേരളത്തിൽ

ഡി എയുടെ വികസന അജണ്ടയാണ് ജനങ്ങൾക്ക് ആവശ്യമെന്ന് പ്രധാനമന്ത്രി

ഡി

പങ്കെടുക്കാൻ അല്പസമയത്തിനകം പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് ഗ്രീൻഫ്രീൽഡ് സ്റ്റേഡിയത്തിലെത്തും പരസൃപ്രചാരണഎഅവസാനിക്കാൻ രണ്ടു ദിവസം ന് മാത്രം ബാക്കിനിൽക്കെ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് രംഗം സജീവമാക്കി മുന്നണികൾ

ഊർജ്ജിതമാക്കി സർക്കാർ

ഇന്ന് ദുഃഖവെള്ളി

സമഗ്ര വികസനത്തിനായുള്ള എൻ ഡി എയുടെ വികസന കാഴ്ചപ്പാട് എടുത്തു പറഞ്ഞ പ്രധാനമന്ത്രി കേരളത്തിലെ പ്രൊഫഷണൽ സമൂഹം ഇന്ന് വിശ്വാസം അർപ്പിക്കുന്നത് എൻ

എയിലാണെന്ന് പറഞ്ഞു

ഡി എ യുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഇത് രണ്ടാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത് കേന്ദ്രാവിഷ്കൃതമായ വിവിധ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെ തരംതാഴ്ത്തി കണ്ട എൽ ഡി എഫ് സർക്കാർ വിശ്വാസി സമൂഹത്തെ ലാത്തിക്കൊണ്ടാണ് നേരിട്ടതെന്നും ശബരിമല വിഷയം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി പറഞ്ഞു സംസ്ഥാന ബി ജെ

അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എൻ

സ്ഥാനാർത്ഥിയാകുന്ന പത്തനംതിട്ടയിലെ കോന്നിയിൽ നടന്ന തിരഞ്ഞെടുപ്പ് പരിപാടിയിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ കർണാടക ഉപമുഖ്യമന്ത്രി അശ്വന്ത് നാരായൺ തുടങ്ങിയവർ പങ്കെടുത്തു

അവസാനഘട്ട പ്രചാരണം ഊർജ്ജിതമാക്കി മുന്നണികൾ ദേശീയ നേതാക്കളുടെ സാന്നിധ്യവും ശ്രദ്ധേയം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നാളെ നേമത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേന്ദ്ര മന്ത്രിമാരായ നിർമ്മല സീതാരാമൻ സ്മൃതി ഇറാനി പ്രഹ്താദ് ജോഷി തുടങ്ങിയവർ എൻ

എിയുടെ പ്രചാരണാർത്ഥം നാളെ കേരളത്തിലെത്തും

നേതാക്കളായ പ്രകാശ് കാരാട്ട് ബൃന്ദ കാരാട്ട് മുഖ്യമൂന്ത്രി പിണറായി വിജയൻ സി

ഐ നേതാവ് കാനം രാജ്യേന്ദ്രൻ തുടങ്ങിയവരും സജീവമായി തിരഞ്ഞെടുപ്പ് പ്രപ്പാർണ രംഗത്തുണ്ട്

തലസ്ഥാന ജില്ലയിലെ കൂടുതൽ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി പ്രാദേശിക് വാർത്താ വിഭാഗം മേധാവി മയൂഷ എ

ഡി

നിയമന വിവാദം സ്വർണ്ണക്കടത്ത് ശബരിമല അഴിമതി തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് യു ഡി

എന്നാൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയ വികസന പദ്ധതികളും വിശ്വാസ സംരക്ഷണവുമാണ് ബി ജെ

യുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ

പ്രവചനങ്ങൾക്കോ സർവേകൾക്കോ നിശ്ചയിക്കാനാവാത്ത തിരഞ്ഞെടുപ്പ് ഫലം നൽകും വിധമാണ് ജില്ലയിലെ മിക്ക മണ്ഡലങ്ങളും

്വികസന കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ പ്രതിപ്പക്ഷം തയ്യാറാവുന്നില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വികസ്മനിപ്പും ക്ഷേമവും ജനങ്ങളുടെ അവകാശമാണെന്നതാണ് എൽ ഡി

ത്രിപുരയ്യിലെ തിരഞ്ഞെടുപ്പ് അട്ടിമറി കേരളത്തിൽ ആവർത്തിക്കാമെന്ന ബീ

യുടെ പ്രഖ്യാപനം ഗൌരവമുള്ളതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

വോട്ടർ പട്ടികയിൽ യഥാർത്ഥ വോട്ടർ അറിയാതെ നിരവധി തവണ ആ വോട്ടറുടെ പേരിൽ വ്യാജവോട്ടർമാരെ സൃഷ്ടിച്ചു എന്ന വസ്തുതയാണ് തെളിവ് സഹിതം താൻ പുറത്ത് കൊണ്ടുവന്നത് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും വ്യാപകമായി ഇതുപോലെ വ്യാജവോട്ടർമാരെ ചേർത്തിരുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പരീക്ഷിച്ച് വിജയിച്ച തന്ത്രം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിടിക്കപ്പെട്ടതിന്റെ ജാള്യതയും രോഷവുമാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിഴലിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു

എം നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ തുടർ ഭരണം എന്ന ആശയം ജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്നതാണെന്നും അത് ഉണ്ടാവുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ചു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് തകർച്ചയെ നേരിടുകയാണ് അവർക്ക് നേതൃത്വം ഇല്ലാതായെന്നും കോടിയേരി പറഞ്ഞു

ഡി ്എഫിന് അനുകൂലമെന്ന് എ ഐ

ഡി എഫ് അധികാരത്തിലെത്തിയാലേ ക്രേരളത്തിൽ സാമ്പത്തിക വികസനവും വ്യാവസായിക് വ്വീകസനവും ഉണ്ടാവൂവെന്നും അദ്ദേഹം പറഞ്ഞു

കേരളത്തിൽ കമ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാവുന്ന സ്ഥിതിയാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് ബി ജെ പി ദേശീയ നേതാവ് ഷാനവാസ് ഹുസൈൻ

പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ നേതൃത്ത്വത്തിൽ രാജ്യം വലിയ പുരോഗതിയിലേക്ക് കുതിക്കുകയാണ് എന്നാൽ കേരളത്തിലെ സർക്കാർ വികസനത്തിന്റെ പേരിൽ കള്ള പ്രചാരണമാണ് നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ മണ്ഡലത്തിൽ എൻ

സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയ്ക്ക് ശേഷം നടന്ന പൊതു സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

എല്ലാവർക്കും അതിവേഗം പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി പ്രതിദിന വാക്സിൻ വിതരണത്തിൽ പുതിയു റെക്കോർഡുമായി ഇന്ത്യ

അതിനിടെ കോവിഡിന്റെ രണ്ടാം വ്യാപനം മുൻനിർത്തി കർശന ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ശ്യാമ

രാജ്യത്ത് കോവിഡിന്റെ രണ്ടാം തരംഗം തുടങ്ങിയതായും സംസ്ഥാനത്ത് അടുത്ത തരംഗം ആരംഭിക്കുന്നതിന് മുമ്പ് പരമാവധി ആളുകൾ കോവിഡ് വാക്സിൻ സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ വാക്സിൻ വിതരണം നടക്കുന്നത് കേരളത്തിലാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു അതേസമയം അവധി ദിവസങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ദിവസവും എല്ലാ പൊതു സ്വകാര്യ കോവിഡ് വാക്സിനേഷൻ കേന്ദ്രങ്ങളിലും വാക്സിനേഷൻ ലഭ്യമാക്കുന്നതിന് വേണ്ട സൌകര്യം ഒരുക്കണമെന്ന് കേന്ദ്രം സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും കഴിഞ്ഞ ദിവസം ആവശൃപ്പെട്ടിരുന്നു കോവിഡ് വാക്സിൻ എല്ലാവരിലും അതിവേഗം എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി ന്യൂസ് ഡെസ്ക് ആകാശവാണി

പൊലീസ് അന്വേഷണം ആരംഭിച്ചു

പള്ളികളിൽ കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് പ്രത്യേക പ്രാത്ഥനയും കുരിശ്ശിന്റെ വഴിയും നഗരി കാണിക്കൽ ചടങ്ങും ഉൾപ്പെടെ വിവധ പരിപാടികളോടെയാണ് ദുഖവെള്ളി ആചരണം സഹനത്തിന്റെയും സമർപ്പണത്തിന്റെയും സന്ദേശമാണ് ദുഖവെള്ളി ഓർമ്മിപ്പിക്കുന്നത് അഞ്ചൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് തീർത്ഥാടന വലിയ പള്ളി വികാരി ഫാദർ യുഹാനോൻ ജോൺ അമ്പലക്കര ആകാശവാണിയോട്

രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർഥികളും വൃക്തികളും നൽകുന്ന പരസ്യങ്ങൾക്ക് ഈ നിബന്ധന ബാധകമാണ് വോട്ടെടുപ്പിന് തൊട്ടുമുൻപ് തെറ്റിധാരണയുണ്ടാക്കുന്ന പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതു സംബന്ധിച്ച നിർദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്

ബ്രെയ്ലി ഡമ്മി ബാലറ്റ് ഷീറ്റുകൾ ലഭ്യമാക്കുന്നത് സംബന്ധിച്ച വിവരങ്ങൾ പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തേണ്ടതാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദേശിച്ചിട്ടുണ്ട് കാഴ്ച പരിമിതിയുള്ള ്വോട്ടർ ആവശ്യപ്പെട്ടാൽ പ്രിസൈഡിംഗ് ഓഫീസറുടെ പക്കലുള്ള ബ്രെയ്ലി ഡമ്മി ബാലറ്റ് നൽകേണ്ടതാണ് സ്ഥാനാർഥികളുടെ പേരും പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ പേരും ബ്രെയ്ലി ലിപിയിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ഇവിഎം ബാലറ്റിലെ അതേ ക്രമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അതിലടങ്ങിയ വിവരങ്ങൾ മനസിലാക്കിയ ശേഷം വോട്ടർക്ക് വോട്ടിംഗ് കംപാർട്ട്മെന്റിലേക്ക് പോകാവുന്നതും ഇവിഎം മെഷീനിൽ വലതു വശത്തായി ബ്രെയ് ലി ലിപിയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ക്രമ നമ്പർ പ്രകാരം ബട്ടൺ അമർത്തി വോട്ട് രേഖപ്പെടുത്താവുന്നതുമാണ് വോട്ടെടുപ്പ് അവസാനിച്ച ശേഷം പ്രിസൈഡിംഗ് ഓഫീസർ ഡമ്മി ബാലറ്റ് ഷീറ്റ് പ്രത്യേകം കവറിൽ സീൽ ചെയ്ത്ത് റിട്ടേണിംഗ് ഓഫീസർക്ക് നൽകണം ഇപ്രകാരം വോട്ട് ചെയ്തവരുടെ എണ്ണവും റിട്ടേണിംഗ് ഓഫീസർക്ക് സമർപ്പിക്കണം

നിയമസഭ തെരഞ്ഞെടുപ്പ് സ്കാന്ധ്രൂകളുടെ പത്തനംതിട്ട ജില്ലാതല നോഡൽ ഓഫീസർമാർക്കും നിയ്മ നിർവഹണ ഏജൻസികൾക്കുമായി കളക്ടറേറ്റിൽ നടത്തിയ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മദ്യമോ പണമോ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്വാധീനമോ ശ്രദ്ധയിൽ പെട്ടാൽ ബന്ധപ്പെട്ട സ്കാഡ് നിയമനടപടി സ്വീകരിക്കണം

പുതിയ ഉത്തരവൊന്നും പുതിയ സർക്കാർ പുറത്തിറക്കാതായതോടെയാണ് നിയന്ത്രണങ്ങൾ അവസാനിച്ചത്

ടി പ്രൊഫഷണലുകൾക്ക് ഗുണകരമാകുന്നതാണ് തീരുമാനം